വീഡിയോ കോൺഫറൻസിങ്ങ് നടത്തുന്നു കോവിഡ് ലോക്ഡൌൺ സംബന്ധിച്ച് ചർച്ചു

രോഗവിമുക്തരാകുന്നവരൂട്ട് നിരക്കിൽ വർദ്ധന

നാട്ടിലേക്ക് തിരിച്ചെത്താൻ പ്രവാസി മലയാളികൾക്കുള്ള ഔൺലൈൻ രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു

വധിച്ചു

സംസ്ഥാനങ്ങളിലെ കോവിഡ് പ്രതിരോധ നടപടികളെക്കുറിച്ചും ലോക്ഡൌൺ സ്ഥിതിഗതികളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച നടക്കുകയാണ് ദേശവ്യാപകമായി കഴിഞ്ഞമാസം ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിനുശേഷം മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നടത്തുന്ന മൂന്നാമത്തെ വീഡിയോ കോൺഫറൻസാണിത് മുഖ്യമന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് പ്രധാനമന്ത്രി ആദ്യ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് മേയ് മൂന്നുവരെ ലോക്ഡൌൺ ദീർഘിപ്പിച്ചു ലോക്ഡൌൺ അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിനിൽക്കെ മുഖ്യമന്ത്രിമാരുമായുള്ള ചർച്ച നിർണായകമാണ് യോഗത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വ്വീജയന് പകരം ചീഫ് സെക്രട്ടറി ടോം ജോസാണ് പങ്കെടുക്കുന്നത് ലോക്ഡൌൺ ഘട്ടംഘട്ടമായി പിൻവലിക്കണമെന്ന നീല്ച്ചാടാണ് കേരളത്തിനുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ മുഖ്യമന്ത്രി ഇക്കാർട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്

ലോകത്ത് ഇത് ഏഴ് ശതമാനമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധനാണ് ഇക്കാര്യം അറിയിച്ചത് കോവിഡ് സംബന്ധിച്ച് രാജ്യത്തെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുകയാണ്

വെന്റിലേറ്റുകൾ ഓക്സിജൻ ഐ

യു എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

ഹർഷ് വർദ്ധൻ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ആക്ടാൾവാണി തിരുച്ചിറപ്പള്ളി വാർത്താ വിഭാഗം മേധാവി ഡോ

ഈ സാഹചര്യത്തിൽ മരണകാരണ സർട്ടിഫിക്കറ്റ് വിദേശത്തെ ഇന്ത്യൻ എംബസിയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എംബാമിങ് സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാണെന്ന് മന്ത്രാലയം വൃക്തമാക്കി

കോവിഡ് പ്രതിരോധത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന പി

ഇ കിറ്റുകളിൽ ഭൂരിഭാഗവും നിർമ്മിക്കുന്നത് ബംഗളുരുവിലാണ്

തമിഴ്നാട്ടിലെ തിരുപ്പൂർ ചെന്നൈ കോയമ്പത്തൂർ ഗുജറാത്തിലെ അഹമ്മദാബാദ് വഡോദര പഞ്ചാബിലെ ഫഗ്വാര ലുധിയാന എന്നിവിടങ്ങളിലും അംഗീകൃത നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്

എന്നാൽ നിലവിലുള്ള ജാഗ്രത തുടരണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

കേരളത്തിൽ ശാസ്ത്രീയമായി മുൻഗണനാ ക്രമത്തിലാണ് പരിശോധന നടത്തുന്നത് എന്നാൽ ആർ

എ കിറ്റുകൾക്ക് സംസ്ഥാനത്ത് ക്ഷാമമുണ്ടെന്നും ശ്രീമതി കെ

കാറന്റൈയിൻ സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കുന്നതിനാണ് കേരളം രജിസ്ട്രേഷൻ നടത്തുന്നത്

ഖാസിഗുണ്ടിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം

എഫും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്